ശബരിമലയിൽ എല്ലാ വിശ്വാസികൾക്കും ഗവൺമെന്റ് സൌക ര്യവും സംരക്ഷണവും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ശബരിമലയിൽ പഴയസ്ഥിതി തുടരാൻ മുഖ്യമന്ത്രി മുൻകൈ എടു ക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധ രൻപിളള

ഐഎസ്ആർഒ ശാസ്ത്രജ്ഞരെ ഉപരാഷ്ട്രപ തിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു ൾ ൽ ൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഗവൺമെന്റ് വിളിച്ച സർവ്വകക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും

ഉച്ചകഴിഞ്ഞ് മൂന്നിന് തന്ത്രിയുമായും പന്തളം കൊട്ടാര പ്രതിനിധികളുമായും മുഖ്യ മന്ത്രി ചർച്ച നടത്തും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പന്തളം കൊട്ടാ രവും തന്ത്രി കൂടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട് സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് യുഡിഎഫും ബിജെ പിയും അറിയിച്ചു ശബരിമലയിൽ എല്ലാ വിശ്വാസികൾക്കും ഗ്വൺമെന്റ് സൌക രൃവും സംരക്ഷണവും നൽകുമെന്നും ഇക്കാരൃത്തിൽ വിശ്വാസി കൾക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു ഗവൺമെന്റ് വിശ്വാസികൾക്കൊപ്പമാണെന്നും എല്ലാവരു ടേയും വിശ്വാസവും സംരക്ഷിക്കുമെന്നുംഅദ്ദേഹം വൃക്തമാക്കി കോഴിക്കോട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന് സമ്മേളന സമാപന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ശബരിമല വിഷയ ത്തിൽ കോൺഗ്രസ് ബിജെപിയുടെ ബി ടീമായി മാറിയതായി അദ്ദേഹം കുറ്റപ്പെടുത്തി

രാജ്യ ത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങ ണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

ശ്രീധരൻപിള്ള ആവശൃപ്പെട്ടു ശബരിമലയിൽ സമാധാനാ ന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ മാതൃകാപരമായ നിലപാട് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകണം സർവ്വകക്ഷി യോഗ തീരുമാനം അനുസരിച്ച് എൻഡിഎ ഘടകകക്ഷികളുമായി ആലോചിച്ച് ഭാവി പരി പാടികൾ ആവിഷ്ക്കരിക്കുമെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറ ഞ്ഞു ശബരിമല വിഷയത്തിലെ സർവ്വകക്ഷി യോഗത്തിൽ ഗവൺമെന്റ് പിടിവാശി ഉപേക്ഷിച്ച് തുറന്ന മനസ്സോടെ ഇടപെടണമെന്ന് എഐ സിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സൂധാകരൻ നയിക്കുന്ന വിശ്വാസ സംര ക്ഷണ യാത്രയ്ക്ക് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് നൽകിയ സ്വീക രണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കോടതി വിധിക്ക് ശേഷവും മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിരാശാ ജനകമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു വിശ്വാസങ്ങളെ കടന്നാക്രമിക്കലാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ രീതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വിശ്വാസ സംരക്ഷണ ജാഥയുടെ മലപ്പുറം ജില്ലാതല സമാ പന സമ്മേളനം പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ സമ്മേളനം ഇന്ന് പത്ത നംതിട്ടയിൽ നടക്കും വിശ്വാസം സംരക്ഷിക്കുക വർഗീയതയെ തുരത്തുക എന്ന മുദ്രാവാകൃം ഉയർത്തി കെപിസിസിയുടെ അഞ്ച് മേഖലകളിലായി നടത്തിയ കാൽനട പ്രചാരണ വാഹന ജാഥകൾ വൈകീട്ട് ജില്ലാ സ്റ്റേഡിയത്തിൽ സംഗമിക്കും കെപിസിസി പ്രസി ഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും ശബരിമലയെ തകർക്കാൻ എവിടെയോ ഗൂഢാലോചന നടക്കു ന്നതായി പന്തളം കൊട്ടാര നിർവ്വാഹക സംഘം പ്രസിഡന്റ് പി

ശ ശികുമാര വർമ്മ പന്തളത്ത് പറഞ്ഞു യുവതീ പ്രവേശനം സംബ ന്ധിച്ച സുപ്രീം കോടതി വിധി അനുകാലമാവുമെന്നാണ് പ്രതീക്ഷി ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

വൈകുന്നേരം അഞ്ചിന് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറ ക്കും പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാ രോഹണം തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ സന്നി ധാനത്ത് നടക്കും വൃശ്ചിക പുലരിയിൽ മറ്റന്നാൾ പൂലർച്ചെ പുതിയ

ശബരിമലയിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്

തോമസ് പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ നിലയ്ക്കലിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തിയതിന് ശേഷം സംസാരിക്കു കയായിരുന്നു മന്ത്രി കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോ ധിക്കുന്നതിന് കൃതൃമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടു ണ്ടെന്നും മന്ത്രി അറിയിച്ചു മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായി വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ പരമ്പരാഗത പാതകൾ തെളിച്ച് സഞ്ചാര യോഗൃമാക്കി അഴുതക്കടവ് ചെറിയാനവട്ടം സത്രം സന്നിധാനം പാതകളാണ് സഞ്ചാരയോഗൃ മാക്കിയത് പാതകളിലെ ഇടത്താവളങ്ങളിൽ അടുത്ത ദിവസം മുതൽ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിപിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സി

ഹാബി ഇടുക്കിയിൽ അറിയിച്ചു

ന്യൂഡൽഹി യിൽ ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിങ്ങിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററികാരൃ മന്ത്രിസഭാ സമിതിയുടേതാണ് തീരുമാനം

ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഗജ ചുഴലിക്കാറ്റ് ഇന്ന് വൈകീട്ട് പാമ്പനും കടലൂരിനുമിടയിൽ തീരം കടക്കുമെന്ന് കാലാ വസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു രാവിലെ തീവ്ര ചുഴലിക്കാ റ്റായി മാറുന്ന ഇതിന്റെ ശക്തി കരയിലെത്തുമ്പോൾ കുറയും

തമിഴ്നാട്ടിലും പുതുച്ചേരി യിലും കനത്ത മഴ ലഭിക്കും

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഏത് സാഹചര്യവും നേരിടാൻ നാവികസേനയെ സജ്ജമാക്കി നിർത്തിയതായി അധികൃതർ അറിയി ച്ചു രണ്ട് കപ്പലുകളും സജ്ജമാക്കിയിട്ടുണ്ട് രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഹെലിക്കോ പ്റ്ററും ഡോർണിയർ വിമാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധി കൃതർ പറഞ്ഞു

അണക്കെട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്

ഇടുക്കി ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാ പിച്ചു

കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നാളെവരെ യെല്ലോ അലർട്ട് തുടരും

വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു ജമ്മുക ശ്മീരിലേയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേയും വിദൂര പ്രദേ ശങ്ങളിൽ ബ്രോഡ്ബാന്റ് സേവനം ലഭ്യമാക്കാൻ ഇതുമൂലം കഴിയു മെന്ന് വെങ്കയ്യ നായിഡു ടിറ്ററിൽ പറഞ്ഞു

മൂന്നര ടൺ ഭാരം വരുന്ന ഉപഗ്രഹം സ്വന്തം റോക്കറ്റിൽ വിക്ഷേപിച്ച് ഐഎസ്ആർഒ ചരിത്ര നേട്ടം കുറിച്ചതായും പ്രധാന മന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു

വിജയകര മായ വിക്ഷേപണം പൂർത്തിയായ ഉടൻ ഹാസനിലെ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ നിയന്ത്രണം ഏറ്റെടുത്തു

രണ്ട് ദിവസത്തിനകം ഇത് സ്ഥിരം ഭ്രഹ്മ ണപഥത്തിലേക്ക് മാറ്റും പ്രളയകാലത്ത് കേരളം കണ്ട മാനവികതാബോധം എക്കാലത്തും നില നിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട് മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മതസൌഹാർദ്ദം തകർക്കുന്നതിന് ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് പോറലേൽപ്പിക്കാൻ ആരെയും അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ലോകവിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ടി

നാളികേര കൃഷിയിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം വിത്തു തേങ്ങയുടെ ഉദ്പാദനകുറവാണെന്നും ഇത് വർദ്ധിപ്പിക്കുന്നതിന് തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ബന്ധ പ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ ഗവൺമെന്റ് തീരു മാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കൂടുംബശ്രീ സുഭിക്ഷ ഔട്ട് ലെറ്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷീരകർഷകനും കന്നുകാലിക്കും ഇൻഷുറൻസ് പരിരക്ഷ

പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ

വെള്ളപ്പൊക്ക സാധ്യത മേഖലകളിൽ ഉയർന്ന സ്ഥലങ്ങളിൽ കന്നുകാലികളെ സൂക്ഷിക്കാൻ എലിവേറ്റഡ് കാറ്റിൽ ഷെഡുകൾ ഒരു ക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവായി പഞ്ചായത്തുകളിലും ബ്ളോക്കുകളിലും മറ്റും ഇത്തരം സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ തുടർച്ചയായി അഞ്ചാം തവണയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളജ് ജേതാക്കളായി വനിതാ വിഭാഗത്തിൽ പാലക്കാട് മേഴ്സി കോളജ് കിരീടം നിലനിർത്തി പുരുഷ വിഭാഗത്തിൽ ഗുരു വായൂർ ശ്രീകൃഷ്ണ കോളേജ് രണ്ടും തൃശൂർ സെന്റ് തോമസ് കോളേജ് മൂന്നും സ്ഥാനം നേടി വനിതാ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളജിനാണ് രണ്ടാം സ്ഥാനം കാലിക്കറ്റ് സർവകലാശാല പഠന വകുപ്പും മൂന്നാ മതെത്തി എയ്ഞ്ചൽ പി ദേവസ്സിയും മുഹമ്മദ് അനീസുമാണ് മികച്ച താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്

ആദ്യ രണ്ടു കളികളും ജയിച്ച ഇന്ത്യ ബി ഗ്രൂപ്പിൽ രണ്ടാമതാണ് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിൽ പ്രവേശിക്കാം ലോക വനിതാ ബോക്സിങ്ങ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ന്യൂഡൽഹി യിൽ തുടങ്ങും

തിരുവനന്തപുരം വിമാനത്താവളോത്ത് ചേർന്ന് ശംഖുമുഖം തീര ത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന കടൽ റൺവെ പദ്ധതി ഉപേക്ഷി ക്കണമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ ആർച്ച് ബിഷപ്പ് ഡോ

സൂസെപാകൃം ആവശ്യപ്പെട്ടു

സ്തീശനേയും സെക്രട്ടറിയായി എ